കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ

ഭരണം നിലനിർത്താനും തിരിച്ച് പിടിക്കാനും അധികാരത്തിൽ വരാനും മൂന്ന് മുന്നണികളും കൊടുമ്പിരികൊണ്ട പ്രചാരണത്തിലാണ് ദേശീയ നേതാക്കളോ ടൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വോട്ടുറപ്പിക്കാൻ സജീവമായി രംഗത്തുണ്ട് കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനിറങ്ങും

അടുത്ത മാസം രണ്ടിന് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി കോന്നിയിൽ എൻ ഡി എ വിജയറാലിയെ അഭിസംബോധന ചെയ്യും

പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നാളെ കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ എൻ

എ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയിൽ പങ്കെടുക്കും തുടർന്ന് അദ്ദേഹം ത്യശൂരിലേക്ക് പോകും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ എൻ ഡി എ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് ദിവസത്തെ പര്യടനത്തിനായി ഇന്ന് വീണ്ടും കേരളത്തിലെത്തും രാവിലെ പാലക്കാട്ട് എത്തുന്ന അദ്ദേഹം കോട്ട മൈതാനത്ത് തുറന്ന വാഹനത്തിൽ പ്രസംഗിക്കും തുടർന്ന് വിവിധ മണ്ഡലങ്ങളിലൂടെ നടത്തുന്ന റോഡ് ഷോ വൈകിട്ട് തൃത്താലയിൽ സമാപിക്കും തുടർന്ന് പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കും നാളെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് രാഹുലിന്റെ പരിപാടി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ഉൾപ്പെടെ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പ്രചാരണത്തിനെത്തും രും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിങ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തവർക്ക് തപാൽ വോട്ടെടുപ്പ് ഇന്നുമുതൽ

നേരത്തെ അപേക്ഷിച്ച നാല് ലക്ഷത്തിൽപരം പേർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം

ശേഖരിക്കുന്ന പോസ്റ്റൽ വോട്ടുകൾ റിട്ടേണിങ് ഓഫീസർ പ്രത്യേകം സജ്ജീകരിച്ച സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും രുര നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും ഇരട്ട വോട്ടിനെതിരെ അഞ്ച് വട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും തുടർ നടപടിയുണ്ടായില്ലെന്നും കോടതി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി വ്യാജ വോട്ട് ചേർക്കാൻ കൂട്ട് നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു രുര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടെ ബൈക്ക് റാലികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തി

കേരളം ഉൾപ്പടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്

വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതിന് ചില സ്ഥലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ ബൈക്കുകൾ ഉപയോഗിക്കുന്ന തായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തി യത് ഇക്കാര്യം കർശനമായി പാലിക്കണമെന്നും നിർദേശത്തിൽ പറയുന്നു

മണ്ഡലങ്ങൾ നിലനിർത്താൻ എൽ ഡി എഫും തിരിച്ച് പിടിക്കാൻ യു ഡി എഫും നില മെച്ചപ്പെടുത്താൻ എൻ ഡി എയും രംഗത്ത് ഇറങ്ങിയതോടെ ജില്ലയിൽ മത്സരം കനത്തു

അസമിൽ മൂന്നും ബംഗാളിൽ എട്ടും ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്

ബംഗ്ലാദേശ് പ്രസിഡണ്ട് മുഹമ്മദ് അബ്ദുൽ ഹമീദ് വിദേശകാര്യമന്ത്രി ഡോ

കോവിഡ് മഹാമാരി വ്യാപിച്ച ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി വിദേശ സന്ദർശനം നടത്തുന്നത്

ഇന്നത്തെ മത്സരം കൂടി ജയിച്ചാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയും ഇന്ത്യയ്ക്ക് സ്വന്തമാക്കാനാവും മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനം മറ്റന്നാൾ നടക്കും രംഭ ദുബായിൽ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ കരുത്തരായ ഒമാനെ ഇന്ത്യ സമനിലയിൽ തളച്ചു

ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒമാനെ സമനിലയിൽ തളയ്ക്കാനായത് ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലെ നിർണായക മത്സരങ്ങൾക്ക് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് ആത്മ വിശ്വാസം നൽകും തിങ്കളാഴ്ച യു

ഇന്ന് എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്

മരംവീണ് പലയിടങ്ങളിലും വൈദ്യുത കമ്പികൾ പൊട്ടി വൈദ്യുതി വിതരണവും തടസപ്പെട്ടു

പട്ടണക്കാട് റെയിൽവേ ട്രാക്കിൽ മരം വീണതിനാൽ അര മണിക്കൂർ ട്രെയിൻ ഗതാഗതവും തടസപ്പെട്ടു രും ഇന്നലെ വൈകിട്ടുണ്ടായ വേനൽ മഴയിലും കാറ്റിലും കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി കോട്ടയം കുമരകം അയ്മനം ആർപ്പൂക്കര കുറവിലങ്ങാട് കറുകച്ചാൽ പുതുപ്പള്ളി പ്രദേശങ്ങളിൽ കാറ്റ് നാശം വിതച്ചു മരങ്ങൾ വ്യാപകമായി കടപുഴകി

രും കാസർകോട് ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർധിച്ച് വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ഈ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ജില്ലയിൽ കോവിഡ് വ്യാപനത്തിന് സാധ്യത ഉണ്ടെന്നും ഡി

രും മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരെ കണ്ടെത്തുന്നതിന് കണ്ണൂരിൽ പരിശോധന കർശനമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ

കരാറുകാർക്ക് നൽകിയ തുകയിൽ സ്രോതസ്സിൽ ആദായ നികുതി കുറച്ചില്ലെന്ന് കാണിച്ച് നേരത്തെ ആദായനികുതി വകുപ്പ് കിഫ്ബിയോട് വിശദീകരണം ചോദിച്ചിരുന്നു

രുര ഇടുക്കിയിൽ യു ഡി